ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച്ശതമാനമായി നിരക്ക് കുറയ്ക്കാൻ ജി

തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മോട്ടോർ വാഹന വൃവസായികൾ

കനത്ത മഴയെ തുടർന്ന് മുംബൈയിൽ റോഡ് റെയിൽ വിമാന ഗതാഗതം തടസ്സപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ്

തദ്ദേശ സ്ഥാപനങ്ങൾ വാടക്ടയ്ക്കെടുക്കുന്ന ഇലക്ട്രിക് ബസ്സിനും നികുതി കുറച്ചിട്ടുണ്ട് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അവതരിപ്പിച്ചശേഷം നടക്കുന്ന് ജി എസ്

കൌൺസിലിന്റെ ആദ്യ് യോഗമാണിത്

ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ പരിസ്ഥിതി സൌഹൃദവും അതോടൊപ്പം മലിനീകരണത്തിനെതിരെ ഒരു വലിയ മുന്നേറ്റമായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു ബാറ്ററികൾക്കും അനുബന്ധ സ്പെയർ പാർട്സ്സുകൾക്കും ഇതേ രീതിയിൽ നികുതി കുറയ്ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഹമ്മദാബാദിൽ വീഡിയോ കോൺഫൻസിലൂടെയാണ് നിതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാബ് കാന്ദ് ഇക്കാര്യം പറഞ്ഞത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ബാറ്ററികൾക്ക് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് ് വലിയ അവസരമാണ് കൈവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവസരമൊരുക്കുമെന്നും അമിതാബ് കാന്ദ് പറഞ്ഞു

പാകിസ്സാനിലെ ജയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുടെ കമാണ്ട്റ്ടുയി മുന്നാ ലാഹോറിയും സീനത്തുൽ ഇസ്ലാം സംഘടനയ്മിൽ പെട്ട മറ്റൊരാളുമാണ് മരിച്ചത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഷോപ്പിയാനിലെ ബേൻബാസർ ബോയ് മൊഹല്ലയിൽ സുരക്ഷ സൈനികർ നടത്തിയ പരിശോക്യന്യ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ ് വിദഗ്ധനായ ലാഹോറിക്കാണ് ദ്ക്ഷിണ കശ്മീരിലെ യുവാക്കളെ സംഘടനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതല ജയ്ഷെ ഏൽപ്പിച്ചിരിക്കുന്നത്

മച്ചിലി മേഖലയിലെ സൈനിക പോസ്റ്റിന് നേരെ പാക് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് സൈനീക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു

മുംബൈയിലെ പ്രഥമ ജനാധിപത്യ പുരസ്കാര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യം പരിശോധിക്കണമെന്നും തദ്ദേശ സ്വയംഭരണസ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നീതി പൂർവ്വവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും നൽകുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് ആദരാജ്ഞലികൾ അർപ്പിക്കുകയും ചെയ്തു

പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റശേഷമുള്ള രണ്ടാമത്തെ മൻകി ബാത്ത് പരിപാടിയാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും പരിപാടി പ്രക്ഷേപണം ചെയ്യും ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്യും

പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രക്ഷേപണ മന്ത്രാലയം ആകാശവാണി ആകാശവാണി വെബ്സൈറ്റ് ദൂരദർശൻ യു ടൂബ് ചാനലുകൾ എന്നിവിടങ്ങളിലും പരിപാടി കേൾക്കാം

രാജ്യത്തെ വിധംസക പ്രവർത്തനങ്ങൾ തടയുന്നതിന് സി ആർ പി എഫ് നൽകുന്ന സംഭാവനകളെ അദ്ദേഹം പ്രകീർത്തിച്ചു

സിയൺ മാതുംഗ മാഹിം അന്ധേരി മാലഡ് ദഹിസർ തുടങ്ങിയ നഗരത്തിലെ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി രക്ഷാപ്രവർത്തത്തിനായ് അഞ്ച് ബറ്റാലിയനായ് ദുരന്തനിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗാർഹ്വാൾ കുമൌൺ ഭാഗത്ത് ഉണ്ടായ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു

ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് ആശുപത്രിയിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി സൌകര്യങ്ങൾ ഒരുക്കിയതിന്റെ ഉദ്ഘാടനകർമ്മം അദ്ദേഹം

ഇന്ന് മാധ്യമങ്ങളുടെ പ്രദേശിക തലവൻമാരെ കൊൽക്കത്തയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി റേഡിയോ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം വ്യക്തമാക്കി

പി ഏക്നാഥ് ഗെയ്ക്വാഡിനെ മുംബൈ കോൺഗ്രസ് കമ്മറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ് കനത്ത പരാജയത്തെ തുടർന്ന് മിലിന്ദ് ഡിയോറ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചതിനെ തുടർന്ന ഉണ്ടായ ഒഴിവിലേക്കാണ് ഗെയ്ക് വാഡിനെ നിയമിച്ചത്

നേരത്തെ ചൈനീസ് അതിർത്തിയിൽ ജനാധിപത്യവാദികളുടെ പ്രകടനത്തെ ചൈനീസ് ട്രയഡ് സംഘങ്ങൾ ആക്രമിച്ചിരുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഹോങ്കോങ്ങിൽ പ്രകടനം നടത്തിയത്

കിഴക്കൻ ഗസനിയിലെ പോലീസ് ആസ്ഥാനത്താണ് ഇന്നു രാവിലെ ചാവേർ സ്ഫോടനം നടത്തിയത് പന്ത്രണ്ടോളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു

ഇന്നു നടന്ന സെമി ഫൈനലിൽ ഇന്ത്യയുടെ സായി പ്രണീത് ജപ്പാൻ താരം കെന്റോ മെമൊട്ട യോട് പരാജയപ്പെടുകയായിരുന്നു

കൊല്ലൂർ മൂകാംബികാ ദേവിക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കാസർകോട് ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം എത്തിയത്